പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി വെർച്ചൽ ഉച്ചകോടി നടത്തും

ഐ എസ് എല്ലിൽ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ മത്സരം സമനിലയിൽ ഇന്ന് എ

മോഹൻ ബഗാൻ ഹൈദരാബാദിനെ നേരിടും

ഒരു മധ്യേഷ്യൻ രാജ്യവുമായി ആദ്യമായി സംഘടിപ്പിക്കുന്ന വെർചൽ ഉഭയകക്ഷി ചർച്ചയിൽ കോവിഡാനന്തര ലോകത്തിലെ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം മെച്ചപ്പെടുത്തുക മുഖൃ വിഷയമാകും ഉച്ചകോടിയിൽ ഇരുരാജ്യവും തമ്മിൽ നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന

ദക്ഷിണേഷ്യയിലെ കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ചു മന്ത്രിതല യോഗത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി വാക്സിൻ വിതരണ വൈദഗ്ധ്യം ഇന്ത്യയുടെ ഉത്പാദന സംഭരണ ശേഷി വാക്സിനേഷൻ കാര്യക്ഷമമാക്കുന്നതിന് പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എന്നിവയും കേന്ദ്ര ആരോഗ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു

അഞ്ച് കോടിയോളം പേർ രോഗമുക്തി നേടി അമേരിക്ക ബ്രസീൽ റഷ്യ യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷ്മായി തുടരുകയാണ്

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നഡ്ഡയുടെ അകമ്പടി വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കേന്ദ്രം പശ്ചിമ ബംഗാൾ സർക്കാരിനോട് റിപ്പോർട്ട് തേടി സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അയച്ചു കത്തിനെ തുടർന്നാണ് നടപടി

നഡ്ഡ ഉൾപ്പെടെ ബി ജെ പി നേതാക്കളായ മുകുൾ റോയ് ദിലീപ് ലോഷ് ് കൈലാഷ് വിജയ്വർഗിയ എന്നിവർ സഞ്ചരിച്ച വാഹനങ്ങൾക്ക് നേരെയാണ് ഇന്നലെ പശ്ചിമ ബംഗാളിൽ വച്ച് ആക്രമണമുണ്ടായത്

കർഷകരെ മണ്ഡി സംവിധാനത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിച്ചുവെന്നും അങ്ങനെ കർഷകരുടെ ഉത്പന്നങ്ങൾ എവിടെയും ആർക്കും സ്വയം നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിൽക്കാമെന്നും കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പറഞ്ഞു ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വോയ്സ് പുതിയ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ഉയർന്നുവന്ന വിഷയങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് സർക്കാർ തയാറാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി അറിയിച്ചു ഈ നിയമങ്ങൾ കുറഞ്ഞ താങ്ങുവിലയെയോ കാർഷിക ഉത്പന്ന കച്ചവട സമിതിയെയോ ബാധിക്കില്ലെന്ന് കർഷകരോട് വിശദീകരിക്കാൻ കേന്ദ്രം ശ്രമിച്ചു എന്നാൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർഷക നേതാക്കൾ തള്ളിക്കളഞ്ഞതായി ശ്രീ തോമർ പറഞ്ഞു ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കർഷക നേതാക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി സർക്കാർ കാത്തിരിക്കുകയാണ് എന്നാൽ കർഷകർ നിയമം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൃഷി സംസ്ഥാനങ്ങളുടെ വിഷയമായതിനാൽ കാർഷിക നിയമങ്ങൾ അസാധുവാണെന്നും കേന്ദ്രത്തിന് ഈ നിയമങ്ങൾ രൂപപ്പെടുത്താൻ കഴിയില്ലെന്നും ചർച്ചയ്ക്കിടെ പലരും അഭിപ്രായം ഉന്നയിച്ചതായി ശ്രീ

കച്ചവടം സംബന്ധിച്ച് നിയമ നിർമ്മാണം നടത്താൻ അവകാശമുണ്ടെന്ന് കേന്ദ്രം വൃക്തമാക്കിയതായും കുറഞ്ഞ താങ്ങുവില കാർഷിക ഉത്പന്ന കച്ചവട സമിതി എന്നിവയെ ഇത് ബാധിക്കില്ലെന്നും കേന്ദ്ര കൃഷി മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി നൂതന സംവിധാനങ്ങളോടു കൂടിയ പുതിയ മന്ദിരം പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഴയ പാർലമെന്റ് മന്ദിരം പുതുക്കി പണിയാൻ തീർത്തും സാദ്ധ്യതകൾ ഇല്ലാത്തതിനാലാണ് പുതിയ മന്ദിരം നിർമിക്കാൻ തീരുമാനിച്ചതെന്ന് ലോക്സഭ സ്പീക്കർ ഓം ബിർള അറിയിച്ചു ഭരണഘടനാ ചുമതലകളുടെ വിജയകരമായ നടത്തിപ്പിന് പുതിയ മന്ദിരം സഹായകരമാവുമെന്നും സ്പീക്കർ പറഞ്ഞു

പാർലമെന്റ് മന്ദിരം ജനാധിപത്യത്തിലൂള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് എല്ലാവരുടെയും സ്വാതന്ത്യെയും അവയ്ക്കായുള്ള

രാജ്യത്തെ ദരിദ്രരും നിരാലംബരുമായ ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിൽ മോദി സർക്കാർ പൂർണ്ണ അർപ്പണ ബോധത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

വ്യാപാര കരാർ സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു

അമേരിക്കയുടെ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമായതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമനുമായി നടത്തിയ ടെലഫോൺ സംഭാഷണത്തിന് ശേഷമാണ് യു

കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധര്ൻ ചർച്ചകളെ അഭിസംബോധന ചെയ്യും

ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു

കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ മൂന്നിലും ജയിച്ച് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് എ

മോഹൻ ബഗാൻ